സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

ചരിത്ര നിമിഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഐ

യിലെ ടെലിമെട്രി സാറ്റലൈറ്റ് കൺട്രോൾ സെൻറിലെയും ട്രാക്കിങ് ആന്റ് കമാൻഡ് നെറ്റ്വർക്കിലെയും ശാസ്ത്രജ്ഞർ

ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് രീതിയിൽ ലാൻഡർ ഇറക്കാനുള്ള സാങ്കേതികവിദ്യ ഇതുവരെ യുഎസ് റഷ്യ ചൈന എന്നീ മൂന്നുരാജൃങ്ങൾ മാത്രമേ സ്വായത്തമാക്കിയിട്ടുള്ളൂ

ബഹിരാകാശത്ത് ഐ എസ് ആർ ഒ കൈവരിക്കുന്ന നേട്ടത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ജനത്യും ആഗോള സമൂഹവും ശാസ്ത്രലോകവും കാത്തിരിക്കുന്നത്

ഏതെങ്കിലും ഒരു രാജൃം ഇന്തൃയെ കടന്നാക്രമിച്ചാൽ ശക്തമായ മറുപടി നൽകുമെന്നും ഉപരാഷ്ട്രപതി വൃക്തമാക്കി

സ്വച്ഛ് ഭാരത് മിഷന്റെ വിവിധ വിഭാഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കും കേന്ദ്ര ജൽ ശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ചടങ്ങിൽ അധൃക്ഷത വഹിക്കും

ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു

ഇതോടൊപ്പം ജലസംരക്ഷണത്തെ കുറിച്ച് പൊതുജന ബോധവൽക്കരണത്തിനായി ബൃഹത് പദ്ധതിയ്ക്കും ഗവൺമെന്റ് തലത്തിൽ തുടക്കം കുറിക്കും

ത്രിദിന സന്ദർശനത്തിനായി ഇന്തോനേഷ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റെറ്റ്നോ മർസൂദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഭീകരവാദത്തിനെതിരെയുള്ള പ്രസ്താവന ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ചും പ്രാദേശിക ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷ വിഷയങ്ങളിലും ഇരുനേതാക്കളും ചർച്ച നടത്തി സൌഹാർദ്ദപരമായി ഇരുരാഷ്ട്രങ്ങളും സമുദ്ര അതിർത്തി പങ്കിടുന്നതായി അഭിപ്രായപ്പെട്ട ശ്രീ ജയ്ശങ്കർ തങ്ങളുടെ കിഴക്കൻ ഇന്തോ പസഫിക് നയങ്ങളിൽ ഇന്തോനേഷ്യ പ്രധാന പങ്കാളിയാണെന്നും അറിയിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഗവർണറുടെ പത്നി രേഷ്മാ ആരിഫ് മന്ത്രിമാർ വിശിഷ്ടവ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ആരിഫ് മുഹമ്മദ് ഖാൻ

ഫ്ളാറ്റുകൾ പൊളിച്ച് നീക്കി ഒരുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു

വാർത്താ വിനിമയ ഗതാഗത സംവിധാനങ്ങൾ ഏറെക്കുറെ പൂർണമായും പുനഃസ്ഥാപിച്ചു

മധ്യ ദക്ഷിണ വടക്കൻ കശ്മീർ ജില്ലകളിൽ എല്ലാ ടെലിഫോണുകളും പ്രവർത്തന ക്ഷമമാണ്

കശ്മീർ താഴ്വരയിലെ പൊതുവായ സ്ഥിതി ശക്തമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

പൊലീസ് നിയമം നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടങ്ങൾ സ്ഥിതി വിലയിരുത്തിവരികയാണ് ക്രമേണ പൊലീസ് നിയമം പൂർണമായി പിൻവലിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണ്

പ്രധാനമന്ത്രി ഹുബർട്ട് മിന്നിസ് അറിയിച്ചതാണിത്

കരോലിനയുടെ വടക്കും തെക്കും തീരത്താണ് ചുഴലിക്കറ്റ് നാശം വിതച്ചത്

തീരരക്ഷാ സേന അറിയിച്ചു

കുക്കോൾഡ് ബെഡ്ടൈം സ്റ്റോറി എന്നിവ നഗാർക്കറുടെ പ്രമുഖ കൃതികളാണ്

ശ്രീലങ്കയുടെ സിന്ധൂരലാ സുരാനിമാല എന്നീ രണ്ട് കപ്പലുകൾ നാളെ വിശാഖപട്ടണം തുറമുഖത്ത് എത്തും

പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാനും ചർച്ചയിൽ തീരുമാനമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദക്ഷിണ കൊറിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ പുരോഗതി നേടിയതായി ശ്രീ രാജ്നാഥ് സിംഗ് ടിറ്ററിൽ കുറിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് ശ്രീ രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിൽ എത്തിയത്

വിദർഭ ഒഡീഷ മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയ് കൊങ്കൺ ഗോവ തെലങ്കാന എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടു്